കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ പ്രധാനമന്ത്രി ജൻ ധൻ യോജനയ്ക്ക് ഇന്ന് ആറ് വയസ്സ്

ജി സി നിർദ്ദേശം സുപ്രീംകോടതി ശരിവെച്ചു

സാമ്പത്തിക അസമത്വങ്ങളിൽ നിന്നും രാജ്യത്തെ ജനങ്ങളെ മോചിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നാണ് പദ്ധതിക്ക് തുടക്കമിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത്

വൈ അക്കൌണ്ടുകളിലൂടെ വിവിധ സർക്കാർ പദ്ധതികളുടെ ഭാഗമായി നേരിട്ടുള്ള സർക്കാരിന്റെ ജന കേന്ദ്രീകൃതി സാമ്പത്തിക നടപടികളുടെ അടിസ്ഥാനശിലയാണ് പ്രധാനമിന്ത്രി ജൻധൻ യോജന എന്ന് ധനമന്ത്രി നിർമല സീതാരാമൻ പറഞ്ഞു

ജി

അവസാന വർഷ പരീക്ഷകൾ മുടക്കമില്ലാതെ നടത്തണമെന്ന് യു

സി യുടെ ജൂലൈ ലേലെ സർക്കൂലറിനെ ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഹർജിയിലാണ് ജസ്റ്റിസ് അശോക് ഭൂഷൻ അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ് എന്നാൽ ദൂരന്തനിവാരണ നിയമപ്രകാരം അവസാന വർഷ പരീക്ഷകൾ നീട്ടി വയ്ക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് അധികാരം ഉണ്ടായിരിക്കും എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു എന്നാൽ പുതുക്കിയ തീയതികൾ യൂ ജി

സംസ്ഥാനം കോവിഡ് മുക്തമാക്കുന്നതുവരെ തെരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പോലും പുറപ്പെടുവിച്ചിട്ടില്ല എന്നിരിക്കേ ഇത്തരമൊരു ഹർജിക്ക് പ്രസക്തിയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി

എം

കേന്ദ്ര ഭവ്ന നഗരകാര്യ സെക്രട്ടറി ദൂർഗ ശങ്കർ മിശ്ര വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഡാഷ് ബോർഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പദ്ധതിയുടെ നഗരതലത്തിൽ വരെയുള്ള തത്സ്ഥിതി വിവരങ്ങളടക്കം ഡാഷ് ബോർഡിലൂടെ ലഭ്യമാവും

രാജ്യത്തെ മരണനിരക്കും കുറയുകയാണ്

കൃത്യമായ രോഗനിർണയവും ചികിൽസയും ഉറപ്പാക്കാൻ സാധിച്ചതാണ് നേട്ടത്തിന് കാരണമെന്നും മന്ത്രാലയം ് അറിയിച്ചു രാജ്യത്തെ പ്രതിദിന കോവിഡ് പരിശോധനകളുടെ എണ്ണവും വർധിച്ചു വരികയാണ് കഴിഞ്ഞ ലക്ഷത്തിലധികം പരിശോധനകൾ ന്ടത്തിയതായി ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ നിസർച്ച് അറിയിച്ചു

ന്യൂസ് ഡസ്ക് ആകാശവാണി

കോവിഡ് രോഗികൾ ഏറ്റവും കൂടുതലുള്ള അമേരിക്കയിൽ ലക്ഷത്തോളം പേർക്ക് രോഗം ഭേദമായി

വിമാനയാത്രയ്ക്കിടെ മാസ്ക് ധരിക്കാൻ വിമുഖത പ്രകടിപ്പിക്കുന്ന യാത്രക്കാരന്റെയും യാത്ര റദ്ദ് ചെയ്യാൻ വിമാനക്കമ്പനികൾക്ക് അധികാരമുണ്ടായിരിക്കും എന്ന് വ്യോമയാന ഡയറക്ടർ ജനറൽ അറിയിച്ചു ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തന ചട്ടത്തിൽ് കേന്ദ്രസർക്കാർ ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഇത് പ്രകാരം ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പാത്രങ്ങൾ ട്രേ തുടങ്ങിയവ മാത്രമേ ഭക്ഷണ വിതരണത്തിനായി ഉപയോഗിക്കാവു

വിമാനങ്ങൾക്ക് ഉള്ളിലുള്ള വിനോദ ഉപാധികൾ ഉപയോഗിക്കാൻ യാത്രക്കാർക്ക് അനുവാദം നൽകിയിട്ടുണ്ട്

അടിയാളരുടെ വിമോചനപ്പോരാട്ടത്തിന് പ്രശക്തിപകർന്ന മഹത് ചൈതന്യമായിരുന്നു അയ്യൻകാളിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

പരിപാടിയിലേക്ക് ജനങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും പ്രധാനമന്ത്രി ക്ഷണിച്ചു

അരുണാചൽ പ്രദേശ് നിയമസഭയുടെ ഇന്നലെ ചേർന്നു ഏകദിന സമ്മേളന്ത്തിലാണ് പ്രമേയം പാസാക്കിയത്

എനർജി ആൻഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ബി ഐ സംഘം കേസിൽ കൂറ്റാരോപിതയായ നടി റിയ ചക്രബർത്തിയെ ഇന്ന് ചോദ്യം ചെയ്തു